സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മറ്റന്നാൾ വിജ്ഞാ പനം പുറപ്പെടുവിക്കുന്നതോടെ നാമനിർദേശ പത്രികാ സമർപ്പണം ആരംഭിക്കും

ഇത്തരം കാര്യങ്ങൾ നിരീക്ഷിക്കാൻ പ്രത്യേക ചെലവ് നിരീക്ഷകരെ കൂടുതലായി നിയമി ക്കുമെന്ന് കമ്മീഷൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു തമിഴ്നാട്ടിലും മഹാ രാഷ്ട്രയിലും രണ്ട് നിരീക്ഷകരെ കഴിഞ്ഞയാഴ്ച്ച കമ്മീഷൻ ഇതി നായി നിയമിച്ചിരുന്നു രാജ്യത്ത് ആദ്യമായാണ് ഇതിനായി നിരീക്ഷ കരെ നിയോഗിക്കുന്നത് ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇലക്ട്രോണിക് വോട്ടിങ്ങ് യന്ത്രങ്ങൾക്കൊപ്പം കൂടുതൽ വിപ്പി പാറ്റ് സ്ലിപ്പുകൾ കൂടി എണ്ണണമെന്ന ആവശ്യത്തെ അനുകൂലിച്ച് സുപ്രീം കോടതി മെച്ച പ്പെടുത്തലുകളിൽ നിന്ന് ജുഡീഷ്യറി ഉൾപ്പെടെ ഒരു സ്ഥാപനവും മാറി നിൽക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി അധ്യക്ഷ നായ ബെഞ്ച് പറഞ്ഞു

ഈ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വിവി പാറ്റ് സ്ലിപ്പുകൾ എണ്ണാൻ കഴിയുമോ എന്ന് വ്യക്തമാക്കി വ്യാഴാഴ്ച്ച ക്കകം മറുപടി സത്യവാങ്മൂലം നൽകാൻ കോടതി കമ്മീഷനോട് ആവശ്യപ്പെട്ടു കേസ് അടുത്ത തിങ്കളാഴ്ച്ച സുപ്രീം കോടതി വീണ്ടും പരിഗണി ക്കും

കോൺഗ്രസ് രണ്ട് ഘട്ടങ്ങളിലായി പുറത്തിറക്കിയ പട്ടികകളിൽ വട കരയിലേയും വയനാട്ടിലേയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ ജനതാദൾ എസ് കോൺഗ്രസിന് തിരികെ നൽകിയ ബാംഗ്ലൂർ നോർത്ത് ലോക്സഭാ സീറ്റിൽ കൃഷ്ണബൈര ഗൌഡയുടെ പേര് പട്ടികയിലുണ്ട്

ലോക്സഭയിലേക്ക് ഒന്നാംഘട്ട വോട്ടെടുപ്പിന് നാമനിർദേശ പത്രികാ സമർപ്പണം അവസാനിച്ചു സൂക്ഷ്മ പരിശോധന ഇന്ന് നട ക്കും

പാർട്ടി ജനറൽ സെക്രട്ടറി ഡി

തൃപാഠിയാണ് ന്യൂഡൽഹി യിൽ പത്രിക പുറത്തിറക്കിയത് അധികാരത്തിലെത്തിയാൽ പാകി സ്ഥാനുമായി സമാധാന ചർച്ച പുനരാരംഭിക്കുമെന്നും ചെറുകിട ഇട ത്തരം കർഷകരുടെ വായ്പ പൂർണമായും എഴുതിത്തള്ളുമെന്നും പ്രകടന പത്രികയിൽ പറയുന്നു സിപിഐയുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം കൂടുതൽ വ്യക്തതയോടെ വോട്ടിങ്ങ് യന്ത്രത്തിൽ നൽകണമെന്ന് പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീ ഷനോട് ആവശ്യപ്പെട്ടു

സുധാകർ റെഡ്ഡി പറഞ്ഞു കൊലപാതക രാഷ്ട്രീയത്തിനും ശബരിമലയിലെ ആചാരങ്ങൾ തകർത്തതിലുമുള്ള പ്രതിഷേധം തെരഞ്ഞെടുപ്പിൽ അലയടിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഹരിപ്പാട് പറഞ്ഞു തിര ഞ്ഞെടുപ്പിന് ശേഷം സിപിഐഎമ്മിന് ചിഹ്നം നഷ്ടപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു

ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്ത് മറ്റന്നാൾ വരെ സൂര്യാഘാതത്തിനും സൂര്യാതപ ത്തിനും സാധൃതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി ആലപ്പുഴ കോട്ടയം പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും മൂന്ന് മുതൽ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാനിടയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഈ ജില്ലകളിൽ നാളെയും മറ്റന്നാളും ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി വരെയും ഉയരും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട എറണാകുളം തൃശൂർ മലപ്പുറം കണ്ണൂർ കാസർകോട് ജില്ലകളിൽ മറ്റുന്നാൾ വരെ ഉയർന്ന താപനില ശരാശരിയിൽ നിന്ന് രണ്ട് മുതൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ട് തൃശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലാണ് ഇന്നലെ ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്

ഈ സീസണിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ താപാ മാപിനി യിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ ചൂടാണിത്

കൊല്ലം ജില്ലയിൽ ഇന്നലെ കെഎസ്ഇബി ജീവനക്കാരൻ ഉൾപ്പെടെ നാലുപേർക്ക് സൂര്യാതപമേറ്റു പുനലൂരിൽ രണ്ടു പേർക്കും ചാത്തന്നൂർ പ്രാക്കുളം എന്നിവിടങ്ങളിൽ ഓരോരു ത്തർക്കുമാണ് സൂര്യാതപമേറ്റത്

ഇതുസംബ ന്ധിച്ച് ലഭിച്ച പരാതിയിലാണ് കമ്മീഷൻ റിപ്പോർട്ട് തേടിയത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് മഞ്ഞപ്പിത്തം വയറിള ക്കം വയറുകടി എന്നിവ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ ജന ങ്ങൾ ജാഗ്രത പുലർത്തണമെന്ന് ആരോഗ്യ വകുപ്പ് ഡയറക്ടർ തിരു വനന്തപുരത്ത് അറിയിച്ചു ജലക്ഷാമം മൂലം ടൈഫോയ്ഡ് കോളറ എന്നിവയക്കും സാധ്യതയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു കേരളാ ഹൈക്കോടതിയിലെ മൂന്ന് അഭിഭാഷകരെ ഹൈക്കോ ടതി ജഡ്ജിമാരായി നിയമിക്കാൻ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി അധ്യക്ഷനായ കൊളീജിയം കേന്ദ്ര ഗവൺമെന്റിനോട് ശുപാർശ ചെയ്തു

പി പോൾ

എന്നിവരെയാണ് ജഡ്ജിമാരാക്കാൻ ശുപാർശ ചെയ്തത്

രണ്ടു വയസിന് താഴെ പ്രായംവരുന്ന കുട്ടി കൾക്കായി ബേബി സീറ്റ് ഘടിപ്പിക്കുന്നതിന് ആവശ്യമായ ഭേദഗതി കൾ മോട്ടോർ വാഹന നിയമത്തിലും ചട്ടങ്ങളിലും വരുത്തണമെന്നും മോട്ടോർ വാഹന വകുപ്പിനോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു വയലിനിസ്റ്റ് ബാലഭാസ്ക്കറിന്റേയും കുട്ടിയുടേയും മരണവുമായി ബന്ധപ്പെട്ട് വന്ന മാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ എടുത്ത കേസിലാണ് നടപടി

തൃശൂർ മഹാരാജാസ് ടെക്നോളജി ക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ജേതാക്കളായി

രണ്ട് കളിയും ജയിച്ച മലേഷ്യ മുന്നിലാണ് ഇന്തൃയ്ക്കും ദക്ഷിണ കൊറി യയ്ക്കും നാലു പോയിന്റുണ്ട് എന്നാൽ ഗോൾ ശരാശരിയിൽ കൊറി യയാണ് മുന്നിൽ അതിനാൽ ഇന്തൃക്കിന്ന് ജയം അനിവാര്യമാണ് ഐപിഎൽ ക്രിക്കറ്റിൽ കിങ്സ് ഇലവൻ പഞ്ചാബിന് വിജയത്തു ടക്കം

ഇന്ന് രാത്രി എട്ടിന് ചെന്നൈ സൂപ്പർ കിങ്ങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും മുനമ്പം മനുഷ്യക്കടത്ത് കേസിലെ രണ്ടു പ്രതികളുടെ ജാമ്യാ പേക്ഷ ഹൈക്കോടതി തള്ളി കേസില്ലെ മൂന്നാം പ്രതി അനിൽ കുമാർ ഏഴാം പ്രതി രവി എന്നിവരുടെ ജാമ്യാപേക്ഷകളാണ് കോടതി തള്ളിയത് ക്രമസമാധാന പ്രശ്നങ്ങളില്ലാതെ തെരഞ്ഞെടുപ്പ് നടത്താൻ നട പടികളാണ് ജില്ലാ ഭരണകൂടം സ്വീകരിക്കുന്നതെന്ന് ജില്ലാ തെരഞ്ഞെ ടുപ്പ് ഓഫീസറായ കോഴിക്കോട് ജില്ലാ കലക്ടർ വി

പൊലീസിന്റെ സഹായത്തോടെ സെക്ടറൽ ഓഫീ സർമാരുടെ നേതൃത്വത്തിൽ പ്രശ്നസാധൃതയുള്ള പ്രദേശങ്ങൾ സന്ദർശിച്ച് വിശദമായ റിപ്പോർട്ട് തയാറാക്കിയിട്ടുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളം തമിഴ്നാട് അതിർത്തികൾ കടന്ന് ഇരട്ട വോട്ട് ചെയ്യുന്നത് പൂർണ്ണമായും തടയുമെന്ന് പത്തനം തിട്ട ജില്ലാ കലക്ടർ പി

നൂഹ് അറിയിച്ചു ഇത് സംബന്ധിച്ച് കുറ്റാ ലത്ത് തിരുനൽവേലി ജില്ലാ ഭരണകൂടവുമായി അദ്ദേഹം ചർച്ച നട ത്തി അനധികൃത മദ്യം കള്ളപ്പണ കടത്ത് കുറ്റവാളികളുടെ വരവ് തുടങ്ങിയവ സംബന്ധിച്ചും യോഗം ചർച്ച ചെയ്തു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അച്ചടിക്കുന്ന പോസ്റ്ററുകളിലും ലഘുലേഖകളിലും സ്റ്റിക്കറുകളിലും പ്രിന്ററുടെയും പ്രസാധകരു ടെയും പേരും വിലാസവും ചേർക്കേണ്ടതാണെന്ന് കണ്ണൂർ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കലക്ടർ മീർ മുഹമ്മദ് അലി അറിയിച്ചു

ഇലക്ഷൻ കമ്മീഷണറുടെ നിർദേശമനുസരിച്ച് ഇടുക്കി ജില്ലയിൽ ജില്ലാ പൊലീസ് മേധാവിയുടെ മേൽനോട്ടത്തിൽ എല്ലാ പൊലീസ് സ്റ്റേഷനുകളിലും മയക്കുമരുന്ന് വേട്ട ശക്തമാക്കി

മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന വരെപ്പറ്റി വിവരങ്ങൾ പൊലീസിന് കൈമാറണമെന്ന് ജില്ലാ പൊലീസ് മേധാവി അറിയിച്ചു ഹിന്ദു വിശ്വാസത്തെ മാത്രം തച്ചുതകർക്കാൻ ശ്രമിക്കുന്ന സിപി ഐഎമ്മിന്റെ ഒരു പ്രതിനിധി പോലും പാർലമെന്റിൽ ഉണ്ടാകരുതെന്ന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷ പി ശശികല പറഞ്ഞു ഹിന്ദു ഐക്യവേദി മലപ്പുറം ചങ്ങരംകുളത്ത് നടത്തിയ പ്രതി ഷേധ സംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ബിജെപി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെ പത്തനംതിട്ട തിരുവല്ല റെയിൽവെ സ്റ്റേഷനിൽ ശരണം വിളിച്ച് സ്വീകരിച്ചത് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണെന്നാരോപിച്ച് പരാതി നൽകി പത്തനം തിട്ട ഡിസിസി ജനറൽ സെക്രട്ടറി വി

സോജിയാണ് പത്തനം തിട്ട ജില്ലാ കലക്ടർക്ക് പരാതി നൽകിയത്